കേന്ദ്രസർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പാലം ഇന്ന് വൈകിട്ട് ഗതാഗതത്തിനായി തുറന്ന് കൊടുക്കും

ഫൈനലിൽ ഇന്ന് പി

ജൻ ഔഷധി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

വോയിസ് രാജൃത്തിനകത്തും പുറത്തുമുള്ള കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഇന്ത്യയിൽ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ ലഭ്യമാക്കാൻ കഴിഞ്ഞതായി പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ സർക്കാർ ആശുപത്രികളിൽ സൌജന്യമായാണ് കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നത്

മോദി പറഞ്ഞു

ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായി അദ്ദേഹം ആശയവിനിമവും നടത്തി കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സൌകര്യങ്ങൾ ഏവർക്കും ലഭ്യമാക്കാൻ കേന്ദ്രസർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ജീവൻ രക്ഷാമരുന്നുകൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എന്നിവ കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞു ജൻ ഔഷധി സുവിധ സാനിറ്ററി പാഡുകൾ ഒരു രൂപ നിരക്കിൽ വിതരണം ചെയ്യാൻ സാധിച്ചു സേവനങ്ങൾക്കു പുറമെ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും ഔഷധിപദ്ധതിയിലൂടെ ഉറപ്പാക്കാൻ സാധിക്കുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ന്യൂലവിൽ ആയിരത്തോളം ജൻ ഔഷധി കേന്ദ്രങ്ങളാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി പതിനായിരുക കേന്ദ്രങ്ങളെന്ന നേട്ടം ഉടൻതന്നെ രാജ്യം സ്വന്തമാക്കുമെന്നും ഉറപ്പ് നൽകി

ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ സമാപന ചടങ്ങ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഇന്നലെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിയ ശ്രീ അമിത് ഷാ ഇന്ന് രാവിലെ റോഡുമാർഗം കന്യാകുമാരിയിലേക്ക് പോയി ശുചീന്ദ്രം ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം അദ്ദേഹം വിജയ് സങ്കൽപ്പ് മഹാസമ്പർക്ക് അഭിയാനിൽ പങ്കെടുക്കുകയാണ് കന്യാകുമാരിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിലും തുടർന്ന് ബിജെപിയുടെ കാര്യകർത്ത സഭയിലും പങ്കെടുത്ത ശേഷം ശ്രീ

തലസ്ഥാനത്ത് നടക്കുന്ന ബിജെപി കോർ കമ്മിറ്റിയിലും തുടർന്ന് ശ്രീകൃഷ്ണ മഠത്തിൽ നടക്കുന്ന സന്യാസി സംഗമത്തിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രി പങ്കുചേരും വൈകുന്നേരം ശംഖുമുഖത്ത് ബിച്ചിൽ വിജയയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം രാത്രിയോടെ അദ്ദേഹം ന്യൂഡൽഫ്റിയിലേക്ക് മടങ്ങും

ജില്ലയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്

പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് കൊൽക്കത്തയിൽ നടക്കുന്ന മെഗാ റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും

എൽഡിഎഫിന്റെ സീറ്റ് വിഭജനം ഏകദേശം പൂർത്തിയായതായാണ് റിപ്പോർട്ടുകൾ

ബിജെപി സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയ്ക്ക് ഇന്ന് അന്തിമ രൂപമാകും ഘടകകക്ഷികളുടെ സീറ്റിന്റെ കാര്യത്തിലും ഇന്ന് ധാരണയുണ്ടാകുമെന്നാണ് സൂചന യുഡിഎഫിൽ സ്ഥാനാർത്ഥി സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്

ഇതോടെ മുൻകൂർ അനുമതിയോട്ടുകൂടി മാത്രമേ യോഗങ്ങളും മറ്റു തെരഞ്ഞെടുപ്പു പ്രചരണ്ടു പ്രവർത്തനങ്ങളും നടത്താവൂ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തെരഞ്ഞെടുപ്പ് മാതൃക പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ ഉദ്ഘാടന ചടങ്ങുകൾ ഒഴിവാക്കിയിട്ടുണ്ട് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണു സർക്കാർ പാലം തുറന്നു നൽകാൻ തീരുമാനിച്ചത്

എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഈ മാസം അവസാനം ഇന്ത്യ സ്റ്റ്ട്ർശിക്കുമെന്ന് സൂചന

ഇൻഡോ പെസഫിക് മേഖലയിൽ സ്വതന്ത്ര വ്യാപാരം അനുവദിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് ചർച്ചയായിരുന്നു